പുതിയ സാങ്കേതിക വിദ്യ്കളുടെ സഹായത്തോടെ പഠനം തുടരാൻ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതിയുടെ ആഹിാനം

കള്ളപ്പണകേസിൽ റോബർട്ട് വാദ്രയ്ക്ക് സ്റ്റേ അനുവദിച്ചില്ല നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേറ്റിന് മുന്നിൽ ഹാജരാകാനും കോടതി നിർദ്ദേശം

പരമ്പര ഇന്ത്യയ്ക്ക്

കൂടുതൽ വിവരങ്ങളുമായി വീണാ മുക്കുന്ദൻ ലോകത്തിലെ തന്നെ ഏറ്റവും ധ്യൂര്ത്യാ്ർന്ന സൈന്യം ഇന്ത്യയുടേതാണെന്ന് പ്രധാന്മന്ത്രി നരേന്ദ്രമോദി മുൻ സൈനികരുടെ ചടങ്ങിൽ പ്പറ്റ്ഞ്ഞു വെല്ലുവിളികളെ നേരിടുന്നതിലും ഏറ്റവും ഫ്ലപ്രദമായി പ്രതികരിക്കുന്നതിലും ഇന്ത്യൻ സൈനികർ എന്നും മുൻപന്തിയിലാണ് പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് പ്രധാനമന്ത്രി ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു മുൻസൈനികർക്കുള്ള ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് ബി ജെ പി ഗവൺമെന്റാണെന്നും മുപ്പത്തയ്യായിരം കോടി രൂപ ഈ പദ്ധതി വഴി വിതരണം ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു

എന്നാൽ തന്റെ നാലര വർഷത്തെ ഭരണത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ സൈനൃത്തിന് വാങ്ങി നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു

പി ഹെലികോപ്റ്റർ കോഴ ഇടപാടിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അനധികൃതമായി ഇടപെട്ടുവെന്നും മോദി ആരോപിച്ചു

ഈ ദിനത്തിനായി രാജ്യം കാത്തിരിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു

കാൺപൂരിലെ ഡി എബ്ബി കോളേജിലെ ശതവാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാട്ട്നം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ വെല്ലുവിളികളെ നേരിടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് രാംനാഥ് കേവിന്ദ് ആഗോള സാങ്കേതിക വിദ്യ രംഗത്ത് ഇന്ത്യ പേരെടുത്തായും രാഷ്ട്രപതി പറഞ്ഞു കാൺപൂരിലെ റൂമയിലുള്ള സിരി ബാലാജി മന്ദിർ അദ്ദേഹം സന്ദർശിച്ചു

സംസ്ഥാനത്ത് സമാധാനം നിലനിർത്തി സാധാരണ ജീവിതം തുടരണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നയം വ്യക്തമാക്കുന്നതിനായി മതസംഘടനകളുടെ യോഗവും വിളിക്കുന്നുണ്ട് അതേസമയം മേഖലയിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഇറ്റാനഗറിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ബുധനാഴ്ച രാവിലെ വരെ ദീർഘിപ്പിച്ചു

തെളിവുകളുടെ പകർപ്പ് വാദ്രയ്ക്ക് നൽകാനും സി ബി

വിദേശത്ത് അനധികൃതമായി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്ന ആരോപണത്തിൻമേലാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെ കേസ്

പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് കമ്മിഷനുമായി കൂടുതൽ സഹകരിക്കണമെന്നും കമ്മിറ്റി ട്വിറ്ററിന് നിർദ്ദേശം നൽകി ട്ടിറ്ററിന്റെ വൈസ് പ്രസിഡന്റ് മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് കമ്മിറ്റി നിർദ്ദേശം നൽകിയത് ഫെയ്സ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്അപ്പ് എന്നീ സാമൂഹ്യ മാധ്യമങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അടുത്തമാസം ചർച്ച നടത്തുമെന്ന് കമ്മിറ്റി ചെയർമാൻ അനുരാഗ് താക്കൂർ ട്വീറ്റ് ചെയ്തു

ഇരു പാർട്ടികളും പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് ഉത്തരാഖണ്ഡിലെ പൌരി പാർലമെന്ററി സീറ്റിൽ എസ് പിയും സംസ്ഥാനത്തെ മറ്റ് സീറ്റുകളിൽ ബി എസ് പിയും മത്സരിക്കും അതേസമയം മധ്യപ്രദേശിൽ മൂന്ന് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും അവശേഷിക്കുന്നവയിൽ ബി എസ് പിയും മത്സരിക്കും

പരാതിക്കാരനായ ബി ജെ പി നേതാവ് അശ്വനി ഉപാധ്യായ ആവശ്യപ്പെട്ട കാര്യം തെരെഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും പരിഗണനയിലാണെന്ന ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബഞ്ച് ചൂണ്ടിക്കാട്ടി

പ്പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പുനഃപരിശോധനാ ഹർജീ നൽകുമെന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച നടത്തി ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഒഴിപ്പിക്കൽ തടയാനും പ്രത്യേകം കരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഗോത്രവിഭാഗത്തിന്റെ അഭിവൃദ്ധിക്കും അവകാശ സംരക്ഷണത്തിനും ബി ജെ

ഗോത്രവർഗ്ഗങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ താത്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര ആദിവാസി ക്ഷേമ മന്ത്രാലയം അറിയിച്ചു

പീറ്റർ ഫാരലി സംവിധാനം ചെയ്ത ഗ്രീൻ ബുക്ക് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു റോമ എന്ന ചിത്രം സംവിധാനം ചെയ്ത അൽഫോൺസോ ക്യുറോണാണ് മികച്ച സംവിധായകൻ കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ വോയിസ് വംശീയ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷ ന്റേട്ടുന്നതിനായി യാത്ര പുറപ്പെടുന്ന ആഫ്രിക്കൻ വംശജനായിരുടരു് പിയാനിസ്റ്റിന്റെ കഥ പറഞ്ഞാണ് ഗ്രീൻ ബുക്ക് മികച്ച് പുത്തിനുള്ള പുരസ്കാരം നേടിയത്

ദ ഫേവറിറ്റ് എന്ന ചിത്രത്തിലെ അഭിനയ്ത്തിന് ഒലീവിയ കോൾമാൻ മികച്ച നടിയായും ബൊഹീമിയൻ റാപ്സഡിയിലെ റമി മാലേക് മികച്ച നടനായും തെരഞ്ഞെടുക്കപ്പെട്ടു

വിവിധ വിഭാഗങ്ങളിലായി ബൊഹീമിയൻ റാപ്സഡി നാലും ബ്ലാക്ക് പാന്തറും റോമയും മൂന്നുവീതം പുരസ്കാരങ്ങൾ നേടി ഇന്ത്യ പശ്ചാത്തലമായി ചിത്രീകരിച്ച പിരീഡ് എൻഡ് ഓഫ് സെന്റൻസ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് സബ്ജറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടു

ഉത്തർപ്രദേശിലെ ഹോപുരിലുള്ള സ്ത്രീകളുടെ ആർത്തവ പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം ഇന്ത്യക്കാരിയായ റുനീത് മോംഗയാണ് ചിത്രം നിർമ്മിച്ചത്

സാങ്കേതിക പരിശോധനകൾക്കുശേഷം വിമാനത്താവളങ്ങൾ അദാനി ഗ്രൂപ്പിന് കൈമാറുമെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു മംഗലുരൂ ഗുവാഹത്തി അഹമ്മദാബാദ് ജയ്പൂർ ലക്നൌ തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളാണ് സ്വകാര്യവൽക്കരിക്കുന്നത്

ഏപ്രിൽ നടക്കുന്ന പാർലമെന്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു എന്നാൽ കോടതിയുടെ തീരുമാനം അതിരുകടക്കുന്നതാണെന്ന് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് അഭിപ്രായപ്പെട്ടു

ഭേദഗതി ചോദ്യം ചെയ്ത് മുൻ എം പി നൽകിയ ഹർജിയെ തുടർന്നാണ് കോട്ടതിയുടെ ഉത്തരവ്

ജെ പി ഗോവ ഘട്ടകും പ്രനാജിയിലെ പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേർന്നു

പി എം എൽ എമാരും എം

ബൂത്ത്തലം മുതലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനമായതായി അധ്യക്ഷൻ പറഞ്ഞു

ജെ പി ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി ബി

സന്തോഷ് യോഗത്തിന് നേതൃത്വം നൽകി

മുന്നൂറോളം പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണെന്നും മന്ത്രി പറഞ്ഞു

മറുപടി ബാറ്റിംഗിൽ സ്മൃതി മന്ധാനയുടെ അർദ്ധസെഞ്ച്റിയുടെ കരുത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു